പ്രധാനമന്ത്രി നർപ്ട്ടമോദി തിങ്കളാഴ്ച സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീണ്ടും ആശയവിനിമയം നടത്തും

കേരളത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം

കോവിഡ് കെടുതികൾ അവസാനിക്കാൻ ഇനിയും നാളുകൾ എടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന

ഗുജറാത്താണ് രാജ്യത്തെ ഏറ്റവും കൂടു്തൽ പേർ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം

ആരോഗ്യ പ്രവർത്തകർക്കു നേരെ നടക്കുന്ന അക്രമങ്ങൾ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാക്കിയാണ് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയത്

തിങ്കളാഴ്ചയാണ് ശ്രീ മോദി മുഖ്യമന്ത്രിമാരെ വീഡിയോ കോൺഫറൻസിലൂടെ കാണുക

ന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്

കോവിഡ് സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അല്ലാത്ത ആശുപത്രികളിലും കോവിഡ് സംശയമുള്ളവരെ ചികിത്സിക്കുന്നതിനുള്ള മാനദണ്ഡം മന്ത്രാലയം പുറത്തിറക്കി ഇതിന്റെ ഭാഗമായി കോവിഡ് ലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവർക്ക് കൃത്യമായ പരിശോധനകൾ നടത്തി ഐസൊലേഷനുള്ള ആശുപത്രികൾ സജ്ജീകരിക്കണം

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപളളി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

ജില്ലയിൽ ഉണ്ടായിരുന്ന മൂന്ന് കോവിഡ് രോഗികളെയും കാറന്റൈനിലാക്കുകയും പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തതോടെയാണ് ജില്ലയ്ക്ക് ഈ നേട്ടം കൈവരിക്കാനായത് ഈ മൂന്ന് പേർ രോഗവിമുക്തരാകുകയും ചെയ്തു

വിവിധ മേഖലകളിലുള്ള നിയന്ത്രണങ്ങൾ വളരെക്കാലം തുടരും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയുടെ തകർച്ച നേരിടുന്നതിന് ഘട്ടം ഘട്ടമായുള്ള പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്

സി ആർ

കോവിഡ് സമൂഹ വ്യാപനം ഉണ്ടായോ എന്നറിയുന്നതിനു വേണ്ട്ടിയാണ് റാൻഡം പി സി

കൂത്തുപറമ്പ് ഇരിട്ടി പയ്യന്നൂർ തലശേരി പാനൂർ മുൻസിപ്പാലിറ്റികളും പാട്യം മാടായി നടുവിൽ പെരളശേരി കോട്ടയം ചിറ്റാരിപ്പറമ്പ കുന്നോത്തുപറമ്പ് പാപ്പിനിശ്ശേരി മാട്ടൂൽ ചെമ്പിലോട് മാങ്ങാട്ടിടം ഏഴോം എരുവേശ്ശി ന്യൂമാഹി പന്ന്യന്നൂർ കൂടാളി മുഴപ്പിലങ്ങാട് ചപ്പാരപ്പടവ് മൊകേരി പഞ്ചായത്തുകളുമാണ് ജില്ലയിലെ ഹോട്ട് സ്പോട്ടുകൾ

ന്യൂയോർക്കിലെ ബ്രോൺസ് മൃഗശാലയിലെ നാല് ക്കടുവകൾക്കും മൂന്ന് സിംഹങ്ങൾക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്

നൊവൽ കൊറോണ വൈറസിന്റെ കെടുതികൾ അവസാനിക്കാൻ ഏറെ നാൾ എടുത്തേക്കുമെന്നും ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗെബ്രിയേസിസ് വൃക്തമാക്കി ലോകത്ത് പല രാജ്യങ്ങളിലും കോവിഡ് ബാധ ആരംഭിച്ചിട്ടേയുള്ളു അതേസമയം മറ് ചിലയിടങ്ങളിൽ കോവിഡ് വ്യാപന തോത് കുറഞ്ഞ് തുടങ്ങിയിട്ടുമുണ്ട്